സുപ്രീംകോടതി വീണ്ടും വിസമ്മിതിച്ചു

സുറത്ത് വിമാനത്താവളത്തിലെ ടെർമിനൽ കെട്ടിട വിപുലീകരണത്തിനുള്ള ശിലാസ്ഥാപനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും

സൌരോർജ്ജവും എൽ ഇ ഡി ലൈറ്റിംഗും ഉപയോഗിച്ചുള്ള പ്രകൃതി സൌഹൃദ കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അഹമ്മദാബാഭിനും വഡോദരയ്ക്കും ശേഷം സംസ്ഥാനത്തെ ഏറ്റവും തിരുക്കേറിയ് മൂന്നാമത്തെ വിമാനത്താവളമാണ് സൂറത്തിന്റേത് സൂറത്തിൽ നടക്കുന്ന നവഭാരത യുവജന ശിൽപശാലയിൽ യുവാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും നവ് സരിയിലെ ദണ്ഡിയിൽ ദേശീയ ഉപ്പുസത്യഗ്രഹ സ്മാരകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിനു സമർപ്പിക്കും ഈ മാസം ഇതു രണ്ടാം തവണയാണ് പ്രധാ നമന്ത്രി ഗുജറാത്ത് സന്ദർശിക്കുന്നത്

രക്തസാക്ഷിത്വദിനമായി രാഷ്ട്രം ഇന്ന് ആചരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് രക്തസാക്ഷിത്വദിനം രാഷ്ട്രമെമ്പാടും വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേ ന്ദ്രമോദിയും മഹാത്മാഗാന്ധിയെയും രാജ്യത്തിന്റെ സ്വാതന്ത്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീരസേനാനികളെയും രാഷ്ട്രം കൃതഞ്ജതയോ ടെയാണ് സ്മരിക്കുന്നതെന്ന് ശ്രീ രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു സാമ്രാജ്യത്തിനെതിരെ വെല്ലുവിളി നടത്തിയ ഗുജറാത്തിലെ ദണ്ഡി യിൽ ഗാന്ധി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ശ്രീ

ന്യൂഡൽഹിയിൽ മഹാത്മാഗാന്ധി അന്ത്യ വിശ്രമംകൊള്ളുന്ന രാജ്ഘട്ടിലായിരുന്നു പ്രധാന അനുസ്മരണ ചടങ്ങുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നർട്ടങ്ടമോദി കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രീയ്ക്ക്ഷി നേതാക്കൾ കര വ്യോമ നാവിക സേനാ മേധാവികൾ തുട്ടങ്ങിയവർ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു

രാജ്യ ത്തിനു വേണ്ടി ജീവത്യാശം ചെയ്ത എല്ലാപേരെയും അനുസ്മരിച്ച് രാജ്യമെമ്പാടും രാവിലെ രണ്ട് മിനിറ്റ് മൌനപ്രാർത്ഥന നടത്തി ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി

ലോക്സഭ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചാണ് സ്പീക്കർ സർവ്വകക്ഷിയോഗം വിളിച്ചത് നാളെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്

പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ഗവൺമെന്റ് നാളെ സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്

ജസ്റ്റിസ് യു

മന്ത്രിസഭായോഗം അംഗീകാരം നൽകി

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് വിദേശ സന്ദർശനം നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി

മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ ചോദ്യംചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരാകാനും കാർത്തിയോട് കോടതി നിർദ്ദേശിച്ചു രാജ്യത്ത് മടങ്ങിവരുമെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സത്യവാങ്മൂലം നൽകണം ഫ്രാൻസ് സ്പെയ്ൻ ജർമ്മനി ബ്രിട്ടൺ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് രുണ്ട് മാസത്തെ സമയമാണ് കാർത്തി ചിദംബരം ആവശ്യപ്പെട്ടിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗെഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്

ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ ധനമന്ത്രി ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തികനിലയും കൃഷി അടിസ്ഥാന സൌകര്യവികസനം ആരോഗ്യം തുടങ്ങിയ മേഖലകൾ തിരിച്ചുളള അവലോകനവും റിപ്പോർട്ടിലുണ്ടാകും വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സഹായത്തോടെ സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ഇത് തയാറാക്കിയത്

സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീ ഷൻ എന്നിവയുടെ ഉത്തരവുകൾ കൂടി കണക്കിലെടുത്താണ് നടപടി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവനക്കാരിൽ നിന്നുള്ള തസ്തിക മാറ്റ നിയമനങ്ങൾക്ക് നിലവിൽ സംവരണ തത്വം ബാധകമാക്കാറില്ല ഇക്കാര്യത്തിൽ ഗവൺമെന്റ് നിയമോപദേശം തേടിയിരുന്നതായും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു

പ്രളയ ദുരിതാശ്വാസ പ്രവ്ർത്തനങ്ങൾ നടത്തുന്നതിൽ ഗവൺമെന്റ് കാര്യ ക്ഷമമായി പ്രവർത്തിച്ചതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയിൽ പറഞ്ഞു പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഇത് ഗൌരവമായി പരിശോധിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാത്തവർക്ക് നഷ്ടപ രിഹാരം ലഭ്യമാക്കുമെന്നും റവന്യൂമന്ത്രി പറഞ്ഞു

ആകാശവാണിയോട്

ഇതോടെ കേരളം ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തായി

വിവിധയിടങ്ങളിൽ താപനില ഗണ്യമായി കുറഞ്ഞു

കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിൽ ഇന്നലെയായിരുന്നു സംഭവം